കേന്ദ്ര ഗവൺമെന്റിനെതിരായി പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ലോക്സഭ തളളി

ലോകകപ്പ് വനിതാഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും

വികസനത്തിന് എതിരായ നിലപാടാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞു

വിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് ശിവസേനയും ബി ജെ ഡിയും വിട്ടുനിന്നപ്പോൾ അണ്ണാ ഡി

വിരുദ്ധ രാഷ്ട്രീയം കളിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അവിശ്വാസ പ്രമേയം ജനാധിപത്യത്തിന്റെ ശക്തിയെയാണു കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വികസന വിരുദ്ധ രാഷ്ട്രീയം പറയുന്നത് ഇന്നത്തെ ശൈലിയായിട്ടുണ്ട്

രാജ്യസുരക്ഷയ്ക്ക് എതിരായാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി സംസാരിച്ചതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു

ഡി

വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തിയത്

രണ്ടര ലക്ഷം കമ്പനികൾക്കെതിരായി നടപടി സ്വീകരിച്ചു രണ്ടു ലക്ഷം കമ്പനികൾ നിരീക്ഷണത്തിലാണ് നിഷ്ക്രിയ ആസ്തികളുടെ കാര്യത്തിൽ നടപടി തുടരുകയാണ് നേരത്തെ നല്കിയ വായ്പകൾ തിരിച്ചുപിടിക്കാതെയാണ് യുപിഎ ഗവൺമെന്റ് പുതിയ വായ്പകൾ നൽകിയതെന്നും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി

ശ്രീലങ്കയുടെ രണ്ട് പ്രവിശൃയിലേക്കാണ് ആംബുലൻസ് സർവ്വീസ് ആദ്യം തുടങ്ങുന്നത്

ഇന്ത്യയുടെ ധനസഹായത്തോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത്

സാനിട്ടറി നാപ്കിൻസ് കരകൌശല ഉൽപ്പന്നങ്ങൾ കൈത്തറി എന്നിവ ഉൾപ്പെടെ കുറഞ്ഞ ആദായമുള്ള വസ്തുക്കളുടെ നികുതി കുറയ്ക്കുന്നതു യോഗം പരിഗണിക്കും ഗുണഭോക്താക്കളുടെ അഭ്യർത്ഥനമാനിച്ച് ജി

ടി നിരക്കുകൾ പുനർനിർണ്ണയം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായേക്കും

ടറായി റുഹേൽഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നും നൂറു കണക്കിന് കർഷകരും ബി ജെപി പ്രവർത്തകരും റാലിയിൽ പങ്കെടുക്കും റാലിയിൽ കർഷക സൌഹൃദമായ നിരവധി പ്രഖ്യാപനങ്ങൾ ശ്രീ മോദി നടത്തുമെന്ന് സൂചനയുണ്ട്

യാത്രാ സൌകര്യങ്ങൾ റോഡുകളുടെ അറ്റകുറ്റപണികൾ പാർക്കിംഗ് സൌകര്യങ്ങളുടെ ഒരുക്കൽ മാലിന്യ സംസ്കരണം ടോയ്ലെറ്റു സൌകര്യങ്ങൾ തുടങ്ങി അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം ഊർജിതപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു

പോലീസിന്റെ മൂല്യങ്ങളും ധാർമ്മികതയും കുട്ടികളെ മനസിലാക്കാനും പോലീസും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കാനുമാണ് ഇതുകൊണ്ടുദ്ദേശിക്കുന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

കുട്ടികളുടെ പഠനഭാരം വർദ്ധിക്കാത്ത തരത്തിലാകും പദ്ധതി ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്

നിർമാണത്തൊഴിലാളികളുടെ ക്ഷേമം സംബന്ധിച്ച് തയ്യാറാക്കിയ കരട് തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതായി കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിങ് കോൺസിൽ അറയിച്ചു

ബി എസ് ഇ നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്

കഴിഞ്ഞ മാസം നാലിന് ഫലം പ്രസിദ്ധീകരിച്ചു തമിഴിൽ പരീക്ഷ എഴുതിയവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയാൽ അവർ നിലവിൽ മുന്നിലുള്ള വിദ്യാർത്ഥികളേക്കാൾ ഉയർന്ന റാങ്കിലെത്താൻ കാരണമാകുമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു

കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായിരുന്ന പാലക്കാട് ഇൻട്രുമെന്റേഷൻ കമ്പനി സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തു മാതൃ കമ്പനിയായ രാജസ്ഥാനിലെ കോട്ട യൂണിറ്റ് നഷ്ടത്തിൽ പ്രവർത്തിച്ചത് മൂലം അടച്ചു പൂട്ടിയിരുന്നു കമ്പനി ഏറ്റെടുക്കന്നതിനായി ചീഫ് സെക്രട്ടറി ചെയർമാനായി നാലംഗ കമ്മിറ്റിയെ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ചിരുന്നു

ജീവനക്കാരുടെ വേതനവും കുടിശ്ശികയുമടക്കമുള്ള കാര്യങ്ങൾ നിലവിലെ കോടതി വിധിയനുസരിച്ച് ഒത്തു തീർപ്പാക്കാനും തത്തിൽ ധാരണയായിട്ടുണ്ട്

പിയിലെ തെക്ക് കിഴക്കൻ മേഖലകളിൽ കൃഷിയാവശ്യത്തിനുള്ള പമ്പുസെറ്റുകൾ മാറ്റി നൽകുന്നതിനാണ് കരാർ

നിലവിലെ ചാമ്പ്യൻമാരായ നെതർലന്റ്സ് ഗ്രൂപ്പ് എയിലാണ്

ത്രിഷാ ഡെബ് ജ്യോതി വെന്നം മുസ്കാൻ കിരർ എന്നിവരടങ്ങുന്ന കോമ്പൌണ്ട് വിഭാഗം വ്യാഴാഴ്ച നടന്ന സെമിഫൈനൽ മൽസരത്തിൽ തുർക്കിയെ പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ എത്തിയത് കോമ്പൌണ്ട് മിക്സ്ഡ് വിഭാഗത്തിൽ ജ്യോതി അഭിഷേക് വർമ്മ വെങ്കലമെഡലിനായി ടീം ഇന്ന് തുർക്കിയെ നേരിടും